ജയ്പൂരിൽ

എല്ലാസഹായവും ഉൾപ്പാക്കുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

രാജ്യത്തെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലും എമിഗ്രേഷൻ നടപടികൾ ധ്രുതഗതിയിലാക്കാൻ കൂടുതൽ കൌണ്ടറുകൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്

വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

രാഷ്ട്രപതിയായതീന് ശേഷമുള്ള ശ്രീ രാംനാഥ് കോവിന്ദിന്റെ പ്രഥമ ഗോവാ സന്ദർശ്നമാണിത് ഗോവ സർവ്വകലാശാലയുടെ മുപ്പതാം വാർഷിക ബിരുദദാന സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കുന്ന പൌര്യ സ്വീകരണത്തിലും ശ്രീ

യുന്റെസ്കോ ലോക പൈതൃക സ്ഥാനമായ ഗോവയിലെ ബോം ജീസ്സ് ബസലിക്ക മാർഡോലിലെ ശ്രീ മാംഗേശി ക്ഷേത്രം എന്നിവിടങ്ങളിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തും

ചൂതാട്ടവും വാതുവെയ്പും നിയന്ത്രിക്കാൻ ഫലപ്രദമായ നിയമവ്യവസ്ഥ ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തതായി അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം വർദ്ധിക്കുന്നത് ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

സ്വന്തം പ്രവർത്തന രീതികളിൽ നിന്ന് തന്നെ മാധ്യമങ്ങളുടെ വിശ്വസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ടിറ്റ് ചെയ്തു രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുടെ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് വിശ്വാസൃതയും പക്ഷപാത രഹിത സമീപനവുമാണ് വാർത്തയെ സന്തുലിതമാക്കുന്നത് എന്നാൽ കഴിഞ്ഞ കൂറേ നാളുകളായി വ്യാജ വാർത്ത എന്ന പുതിയ പ്രതിഭാസം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന് ഇത്തരം പ്രവർത്തനം മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ക്ളങ്കം വരുത്തിയിരിക്കുയാണ് മഹാരാഷ്ട്രയിൽ കുട്ടികളെ ത്ട്ടികൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ച്ചിന്റൽ പുറത്ത് വിട്ട ചിത്രം പഴയതും വാർത്തയുമായി ബന്ധമില്ലാത്തതുമാണ് ഇത്തരം നടപടികൾ തെറ്റിദ്ധാരണ പരത്തുന്നുതിനും മറ്റ് ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണെന്നും ശ്രീ രാജ്യവർദ്ധൻ റാത്തോഡ് വ്യക്തമാക്കി

കൊച്ചിയിൽ നടന്ന പാർലമെന്ററി കൺസൾറ്റേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

സുഗമമായ ഇമിഗ്രേഷൻ സാധ്യമാക്കുന്നതിന് സുരക്ഷാവശങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലും എമിഗ്രേഷൻ നടപടികൾ ധ്രുതഗതിയിലാക്കാൻ കൂടുതൽ കൌണ്ടറുകൾ തുറക്കും

നയം രൂപീകരണത്തിനായി സാമ്പത്തികം വിവരസാങ്കേതിക വിദ്യ ടെലികോം ഉപഭോക്തൃകാരൃം തുടങ്ങിയ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാനാണ് യോഗം ചേർന്നത്

വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുനേതാക്കളും തീരുമാനിച്ചു ഇരു രാജ്യങ്ങളിലേയും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ വ്വിവിധ്യമേഖലകളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കും മേഖല അന്തൂർദേശീയ വിഷയങ്ങളിൽ ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ച്ചെയ്ത്തായി വിദേശകാര്യ മന്ത്രാലയം ടിറ്ററിൽ അറിയിച്ചു നേപ്പാൾ ഇന്ത്യയുടെ എക്കാലത്തേയും മികച്ച സുഹൃത്തും നല്ല അയൽക്കാരനുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇന്ത്യ തുടർന്നും സഹായം നൽകുമെന്നും ശ്രീ

ഭൂട്ടാനിൽ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് പ്രധാനമന്ത്രി ഷെറിങ്ങ് നന്ദി രേഖപ്പെടുത്തി മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാൻ പ്രധാനമന്ത്രി വെള്ളിയാഴ്ചയാണ് ന്യൂഡൽഹിയിൽ എത്തിയത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി ഭൂട്ടാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഭൂട്ടാന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് എല്ലാസഹായവും രാഷ്ട്രപതി ഉറപ്പ് നൽകി

വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജുമായും ഷെറിങ്ങ് കൂടിക്കാഴ്ച നടത്തി

തീം മ്യൂസിക്ക് കാർട്ടർ ഫൈനലിൽ ഉറുഗ്വായെ ഫ്രാൻസ് പ്രാജയപ്പെടുത്തിയത് മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് ഒന്നിന്റെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്രസീലിനെതിരെ ബെൽജിയത്തിന്റെ ജയം കൂടുതൽ വിവരങ്ങളുമായി ആകാശ്വാണി പ്രതിനിധി

ജക്കാർത്തയിൽ നടന്ന മത്സരത്തിൽ എച്ച്

പ്രണോയും പി

ഒളനിമ്പിക്സ് വെളളി മെഡൽ ജേതാവും ലോക മൂന്നാം നമ്പർ താരവുമായ സിന്ധു ബിങ്ജിയോയോടാണ് പരാജയപ്പെട്ടത്

ടി ടവന്റി സീരിസ് മത്സരങ്ങളെത്തുടർന്ന് മൂന്ന് ഏകദിന ഇന്റർനാഷണലുകളും അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കും

കനത്ത മഴയെ ്തുടർന്ന് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കടുത്ത ജാഗ്രത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ്